രാജ്യത്തെ മികച്ച വൃവസായികൾക്ക് ഗവൺമെന്റിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടൂത്ത്മാസം എട്ടിന്

ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കൊച്ചിയിൽ എത്തിയ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഇന്ന് രാവിലെ അഗത്തിയിലേക്ക് പോകും

പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ അക്രമങ്ങളും പ്രകോപനങ്ങളും ഒഴിവാക്കണമെന്ന് ഇറാനോട് നാറ്റോ

ന്യൂഡൽഹിയിൽ രാജ്യത്തെ വൃവസായ പ്രമുഖരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

അഴിമതിക്കാർക്ക് എതിരെ സ്വീകരിച്ചു നടപടികളുടെ പേരിൽ കേന്ദ്രഗവൺമെന്റിനെ വ്യവസായ വിരുദ്ധമായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വൃവസായിക പുരോഗതിക്കും നടത്തിപ്പിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നടപടികളെ എട്ടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വലിയ ലക്ഷ്യങ്ങളാണ് മുന്നിൽ കാണുന്നതെന്ന് അഭിപ്രായപ്പെട്ടു വ്യവസായ പ്രമുഖരായ ക്ലിർലോസ്കർ ബ്രദേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവേ ്രാജ്യത്തിന്റെ അഞ്ച് ട്രില്യൻ ഡോളറെന്ന സാമ്പത്തിക ലക്ഷ്യം അദ്ദേഹ്ർ പ്രത്യേകം പരാമർശിച്ചു പാപ്പരത്ത കടബാധ്യതാ നിയമങ്ങളിൽ കൊണ്ടുവന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ പരാമർശിക്കവേ വ്യവ്സായ സമൂഹത്തെ സഹായിക്കാനാണ് ഗവൺമെന്റ് ഇത്തരം നടപടികളില്ല്ക്ക് കടന്നതെന്ന് ശ്രീ മോദി പ്രത്യേകം ഓർമ്മിപ്പിച്ചു

നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ്കുമാറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്തും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും

സമ്പദ്വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും സാമ്പത്തിക വളർച്ചു വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ഉന്നത ബിസിനസ് വൃത്തങ്ങളുമായി ആശയവിനിമയം നടത്തി കേന്ദ്രബജറ്റ് അടുത്തമാസം ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും

കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല

രാജ്യത്തെ രണ്ടു പ്യൂസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും ഗർഭിണികളെയുംപ്രതിർോധ കുത്തിവെയ്പ്പിന്റ പരിധിയിൽ കൊണ്ടുവരാനാണ് പദ്ധതിയിലൂട്ട് ഗ്രിവൺമെന്റ് ലക്ഷ്യമിടുന്നത്

പിന്നീട് കവരത്തിയിൽ എത്തുന്ന അദ്ദേഹം അവിടെ ലക്ഷദ്വീപിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തറക്കല്ലിടും തുടർന്ന് അദ്ദേഹം അവിടെനിന്ന് ബംഗാരം ദ്വീപിലേക്ക് പോകും

ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അസ്സം ഹിമാചൽപ്രദേശ് കർണ്ണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ത്രിപുര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നും ധനസഹായം നൽകുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ യോഗത്തിൽ പങ്കെടുത്തു

പ്രകൃതിദുരന്തങ്ങളെ കാര്യക്ഷമമായി നേരിടുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കി കേന്ദ്രഗവൺമെന്റ് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്

പശ്ചിമേഷ്യയിലെ സുരക്ഷാക്കൂർ ചർച്ചു ചെയ്യാനായി ബ്രസൽസിൽ ഒത്തുകൂടിയ നാറ്റോ അംഗങ്ങ്ളെ അഭിസംബോധന ചെയ്തശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേയാണ് ജെൻസ് ഇത്തരത്തിൽ പ്രതികരിച്ചത്

ഖാസിം സുലൈമാനിയുടെ മരണത്തിനു പകരം ചോദിക്കുമെന്ന ടെഹ്റാന്റെ പ്രസ്താവനയ്ക്ക് ഇറാന്റെ ഏതു നടപടിക്കും തക്ക തിരിച്ചടി നൽകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രെംപിന്റെ മറുപടിയാണ് പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് മിലിട്ടറിയുടെ ഇറാഖ് കർമ്മസേന തലവൻ ബ്രിഗേഡിയർ ജനറൽ വില്യം സീലി ഇറാഖ് സംയുക്ത കമാൻഡിന്റെ തലവന് കത്തയച്ചു കത്തിനെ ഉദ്ധരിച്ചുള്ള എ

പി വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വരുംദിവസങ്ങളിൽ യു

എസ് സേനയുടെ ഇറാഖിൽ നിന്നുള്ള നീക്കം സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബ്രിഗേഡിയർ സീലി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

പരമ്പരയിലെ മൂന്നാമത്തെയും അവ്സാനത്തെയും മത്സരം വെള്ളിയാഴ്ച പൂനെയിൽ നടക്കും

മുസ്ലീം പാഴ്സി വനിതകൾക്കെതിരെയുള്ള വിവേചനം സംബന്ധിച്ച വിഷയങ്ങളും കോടതി ഇതോടൊപ്പം പരിഗണിക്കും

പ്രകൃതിസൌഹാർദ്ദമായ ഈ ഇന്ധനം പരിസ്ഥിതിക്കും സമ്പദ്ഘടനയ്ക്കും ഗുണപ്രദമാണെന്ന് അദ്ദേഹം പൂനെയിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു എത്തനോൾ ഉപയോഗം സംബന്ധിച്ച ബോധവൽക്കരണങ്ങളുമായി നിരവധി വർഷങ്ങൾ കടന്നു പോയതായും എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ എത്തനോളുമായി ബന്ധപ്പെട്ട നയങ്ങൾ പൂർണ്ണ രൂപത്തിൽ നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു

തീർത്ഥാടകർക്ക് കുടിവെള്ളവും താമസസൌക്യവും ഏർപ്പാടാക്കീയുതായി മുഖ്യമന്ത്രി പറഞ്ഞു ദക്ഷിണ പർഗാന ജില്ലയിലെ കാക് ദ്വീപിൽ ഇന്ന്ലെ മേളകളുടെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് അവലോക്ന്റ് ന്ടത്തുകയായിരുന്നു ശ്രീമതി മമതാ ബാനർജി